കർഷക ആത്മഹതൃ വിഷയത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി

മുഖ്യമന്ത്രി പിണറായി വിജയൻ

ചലച്ചിത്ര പ്രവർത്തകനുമായി ഗിരീഷ് കർണാട് അന്തരിച്ചു

കുറയുമെന്ന് കാലാവ്സ്ഥാ നിരീക്ഷണ കേന്ദ്രം തെക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴ

കൊലപ്പെടുത്തിയ കേസിൽ ആറ് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി

കർഷകരുടെ രണ്ട് ലക്ഷം രൂപവരെയുള്ള എല്ലാ കടങ്ങളും എഴുതിത്തള്ളാൻ നിർദ്ദേശം ഉണ്ട് കർഷകരുടെ എല്ലാ കടങ്ങളും കാർഷിക കടാശ്വാസ കമ്മിഷന്റെ പരിധിയിൽ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ കർഷക ആത്മഹത്യയ്ക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തിര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം കൃഷിക്കാരുടെ ക്ഷേമത്തിനായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എല്ലാം ഇപ്പോഴത്തെ ഗവൺമെന്റ് ചെയ്തതായി മന്ത്രി സുനിൽകുമാർ പറഞ്ഞു മുൻ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്തെ നയങ്ങളാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും സർഫാസി നിയമം ബി ജെ പി ഗവൺമെന്റാണ് കൊണ്ടുവന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷത്തുനിന്നും ഐ

ഗവൺമെന്റിന്റെ നി്ഷേധാത്മകമായ നടപടികൾമൂലം കർഷക ആത്മഹത്യകൾ വർദ്ധിച്ചതായും അദ്ദേഹം പറഞ്ഞു സഹകരണ മേഖലയിൽ നിന്ന് സർഫാസി നിയമം ഒഴിവാക്കുമെന്ന് പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

വിലത്തകർച്ചയും ജപ്തി നടപടികളും ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് കൃഷിക്കാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി

ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പഞ്ചായത്തുതലത്തിലും വാർഡുതലത്തിലുമുള്ള സമിതികളിൽ ജനപ്രതിനിധികളെക്കൂടി ഉൾപ്പെടുത്തും

രാജു സംസ്ഥാനത്ത് നാട്ടാനകളെ പരീപാലിക്കുന്നത് ചട്ടമനുസരിച്ചാണെന്ന് മന്ത്രി കെ രാജു നിയമസഭയിൽ പറഞ്ഞു ഇക്കാര്യത്തിൽ കാലാകാലങ്ങളിൽ കോടതികൾ പുറപ്പെടുവിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് ഇതിനു വിരുദ്ധമായി വനം വകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു

രാഗം ആനന്ദ ഭൈരവി നീലകുറിഞ്ഞി പൂത്തപ്പോൾ ദ പ്രിൻസ് എന്നീ ചിത്രങ്ങളിലാണ് അദ്ദേഹം വേഷമിട്ടത് ഇന്ത്യൻ സിനിമയ്ക്കും നാടകവേദിയ്ക്കും രംഗവേദിക്കാകെയും ഗിരീഷ് കർണാടിന്റെ വേർപാട് നികത്താനാവാത്ത നഷ്ടമാണെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തും പ്രശസ്ത തിരക്കഥാകൃത്തുമായ ജോൺ പോൾ അനുസ്മരിച്ചു

ഡി എഫ് ഗവൺമെന്റിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം ഇന്ന് നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന് റിപ്പോർട്ട് നൽകി പ്രകാശനം നിർവഹിക്കും മൂന്നുവർഷം പൂർത്തിയാക്കിയ ഗവൺമെന്റ് പ്രകടനപത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ എത്രത്തോളം നടപ്പാക്കിയെന്നതിന്റെ വിലയിരുത്തലാണ് പ്രോഗ്രസ് റിപ്പോർട്ടിലുള്ളത് പ്രകടനപത്രികയിൽ പറഞ്ഞ കാരൃങ്ങൾക്ക് പുറമേ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനങ്ങളും അനുബന്ധമായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഗവൺമെന്റ് പ്രഖ്യാപിച്ച നയങ്ങൾ പ്രളയാനന്തര പുനർനിർമാണം കേരള പുനർനിർമാണ പദ്ധതി കിഫ്ബി മറ്റു പ്രധാന പദ്ധതികളും പ്രവർത്തനങ്ങളും മികവിനു കിട്ടിയ അംഗീകാരങ്ങൾ തുടങ്ങിയവയും പ്രോഗ്രസ് റിപ്പോർട്ടിനൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗവൺമെന്റ് വെബ്സൈറ്റിലും പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും മഴ സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ

തെക്കൻ ജില്ലുകളിൽ ഇന്ന് വ്യാപകമായി മഴ ലഭിക്കും നാളെയും മറ്റന്നാളും ചില ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്ന ഓറഞ്ച് അലർട്ട് പിൻവലിച്ചു നാളെ കണ്ണൂരും കോഴിക്കോട്ടും യെല്ലോ അലർട്ടും ബുധനാഴ്ച മലപ്പുറത്തും കോഴിക്കോട്ടും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്

അ്തിനിടെ അറബിക്കടലിൽ ലക്ഷദ്വീപ് തീരത്തിനിടുത്ത് ന്യൂനമർദ്ദം ്രൂപ്പപ്പെട്ടു

ഇത് കേരള തീരത്തെ മഴയെ ദുർബലപ്പെടുത്തുമെന്നാണ് നിഗമനം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവ്വകലാശാല അറ്റ്മോസ്ഫിയർ സ്റ്റഡീസിലെ റിമോട്ട് സെൻസറിങ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടർ എം

മനോജ് ആകാശവാണിയോട്

വൈദ്യുതകമ്പി തട്ടിക്കിടന്ന വെള്ളക്കെട്ടിൽ നിന്ന് ഷോക്കേറ്റത്

റാങ്ക്ലിസ്റ്റ് സംസ്ഥാനത്തെ എൻജിനീയറിംഗ് ആർകിടെക്ചർ ഫാർമസി കോഴ്സുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു

ലോകകപ്പ് ക്രിക്കറ്റ് ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ നേരിടും